തന്നെയെന്ന് സ്പീക്കർ വിശ്വാസ വോട്ടെടുപ്പ് വേഗം നടത്തണമെന്നാവശ്യപ്പെട്ട് രണ്ട് സ്വതന്ത്ര എം എൽ എ മാർ സമർപ്പിച്ച ഹർജി ഉടൻ പരിഗണിക്കാനാവില്ലെന്ന് സ്വുപ്പ്രീംകോടതി

തീരുമാനങ്ങൾ രാജ്യത്തെ അതിവേഗം വികസന പാതയിലെത്തിക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ എല്ലാ കാര്യങ്ങളും നിയമപ്രകാരം നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു പാർട്ടി വിരുദ്ധ നിലപാടുകളിൽ വിമത എം

എ മാരെ അയോഗ്യരാക്കണമെന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി നേതാവ് സിദ്ദരാമയ്യയുടെ പരാതിയിൽ വാദം കേൾക്കാൻ വിമത എം എൽ എ

വിദാൻ സ്ട്രയിൽ ഇന്ന് വിശ്വാസ വോട്ടടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് അതിനിടെ വിശ്വാസ വോട്ടടെുപ്പ് മറ്റന്നാളത്തേക്ക് നീട്ടാൻ ഭരണപക്ഷം റിപ്പോർട്ടുണ്ട്

എൽ എ മാർ സമർപ്പിച്ച ഹർജി ഉടൻ പരിഗണിക്കാനാവില്ലെന്ന് സുപ്രീംകോടതി ഹർജി നാളെ പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചു വിശ്വാസ വോട്ടെടുപ്പ് വൈകിപ്പിക്കുകയാണെന്ന് എം

ഡി എസ് ഗവൺമെന്റിന് പിന്തുണ പിൻവലിച്ച രണ്ട് എം എൽ എ

എൽ എ മാർ സ്പീക്കർക്ക് രാജികത്ത് സമർപ്പിച്ചതിനെ തുടർന്ന് കർണാടകയിൽ രാഷ്ട്രീയ പ്രതിസന്ധി നിലനിൽക്കുകയാണെന്നും ഹർജിയിൽ പറയുന്നു

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ ക്രമീകരണങ്ങൾ പൂർത്തിയായി

എൽ വി മാർക്ക് ത്രീയുടെ സാങ്കേതിക തകരാർ പൂർണ്ണമായി പരിഹരിച്ചതായി ഐ എസ് ആർ ഒ ചെയർമാൻ ഡോ ശിവൻ ചെന്നൈയിൽ പറഞ്ഞു

സെപ്തംബർ ഏഴിന് ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറക്കാൻ കഴിയുന്ന വിധത്തിലാണ് വിക്ഷേപണം ക്രമീകരിച്ചിട്ടുള്ളത്

ഇന്ത്യയുടെ ബഹിരാകാശ ദൌത്യത്തിലെ ഏറ്റവും സങ്കീർണ്ണമായ പര്യവേഷണമാണ് ചന്ദ്രയാൻ രണ്ട് ദൌത്യം ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ രഹസ്യങ്ങൾ തേടിയാണ് ചന്ദ്രയാൻ രണ്ടിന്റെ യാത്ര

വിവിധ വികസന പദ്ധതികളിൽ വേഗത അളവ് നൈപുണ്യം തുടങ്ങിയ മൂന്ന് പ്രധാന ഘടകങ്ങൾക്ക് മുൻതൂക്കം നൽകുന്നതിലൂടെ ഇന്ത്യയെ അഞ്ച് ട്രില്യൺ ഡോളർ സാമ്പത്തിക ശക്തിയാക്കാൻ ശ്രമിക്കുന്നതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു റോഡ് റെയിൽ കായിക മേഖലകളിൽ നൂറ് ലക്ഷം കോടിയുടെ നിക്ഷേപത്തിലൂടെയുള്ള വികസനമാണ് ലക്ഷ്യമിടുന്നത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

നേതാവും സിറ്റിംഗ് എം

യുമായ രാംചന്ദ്ര പാസ്വാന്റെ നിര്യാണത്തെ തുടർന്ന് ലോക്സഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവച്ചു ന്യൂഡൽഹിയിലെ രാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ ഇന്നലെയായിരുന്നു പാസ്വാൻ അന്തരിച്ചത് സഭ സമ്മേളിച്ച ഉടൻ പാസ്വാന്റെയുട് ഡൽഹി മുൻ മുഖ്യമന്ത്രി ഷീല ദീക്ഷിത്തിന്റെയും നിര്യാണ്ട് സംബന്ധിച്ച് സ്പീക്കർ ഓം ബിർള ലോക്സഭയെ അറിയിച്ചു ബീഹാറിലെ സമസ്തിപൂർ ലോക്സഭാ മണ്ഡലത്തെയാണ് പാസ്ഖാൻ പ്രതിനിധീകരിച്ചത്

ഇന്ന് സഭ സമ്മേളിച്ച ഉടൻ കർണാടകത്തിലെ രാഷ്ട്രീയ പ്രതിസന്ധി സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് അംഗങ്ങൾ വിഷയം സഭയിൽ ഉന്നയിച്ചു കോൺഗ്രസ് എം

എന്നാൽ വിഷയം സുപ്രീംകോടതിയുടെ പരിഗണനയിലായതിനാൽ ചെയർമാൻ എം

തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ സഭയിൽ മുദ്രാവാകൃമുയർത്തി

ഘടനാപരമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയതു മൂലം ഇത് സാധ്യമാകുമെന്നും ന്യൂയോർക്കിൽ വാർത്താ ഏജൻസിയോട്ട് സംസാരിക്കവെ അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഒരു റിപ്പോർട്ട് ചരക്ക് സേവന നികുതി പ്ലാപ്പര്ത്യ നിയമം എന്നിവ നടപ്പിലാക്കിയത് വഴി മാറ്റത്തിന് തുടക്കം ക്രുറിച്ചതായും ഇവ പ്രാവർത്തികമാകാൻ സമയമെടുത്തു എങ്കിലും ഇതിന്റെ മാറ്റങ്ങൾ പ്രതിഫലിച്ച് തുടങ്ങിയതായും ശ്രീ

അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ സാമ്പത്തിക വളർച്ച ഏഴ് ശതമാനത്തിൽ നിന്നും എട്ട് ശതമാനമാക്കാനാണ് മോദി ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതിലൂടെ രാജ്യം അഞ്ച് ട്രില്യൺ ഡോളർ സമ്പദ് ഘടന എന്ന നേട്ടത്തിൽ എത്തിച്ചേരാനുള്ള ശ്രമത്തിലാണെന്നും അദ്ദേഹം അറിയിച്ചു ന്യൂയോർക്കിലെ യു

ആസ്ഥാനത്ത് നടക്കുന്ന സുസ്ഥിര വികസന ലക്ഷ്യവുമായി ബന്ധപ്പെട്ട ഉന്നതതല മന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കവെയാണ് നീതി ആയോഗ് വൈസ് ചെയർമാൻ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് സന്ദർശനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഇന്ത്യ നിക്ഷേപക സെമിനാറിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം

കോഴിക്കോട് കണ്ണൂർ വയനാട് ജില്ലകളിൽ ഇന്ന് റെഡ് അലേർട്ട് ഈ ജില്ലകളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു

ഇടുക്കി എറണാകുളം തൃശൂർ മലപ്പുറം കാസർകോട് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇൌ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായതോ അതിശക്തമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്

കടൽ അതിപ്രക്ഷുബ്ധമാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി

നിരവധി പേർക്ക് പരിക്കേറ്റു വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയവർ സഞ്ചരിച്ചു സ്വകാര്യ ബസിൽ അജ്ഞാത വാഹനം വന്നിടിക്കുകയായ്ട്ടിരുന്നു

പരിക്കേറ്റവരിൽ ചിലരുടെ നില ഗുരുതരമാണെന്ന് പോലീസ് അറിയിച്ചു

എസ് പ്രസിഡന്റ് ഡൊണൾഡ് ട്രംപുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും

ഭീകരതയ്ക്കെതിരെ പാകിസ്ഥാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തുന്നില്ലെന്ന ട്രംപിന്റെ ആരോപണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇമ്രാൻ ഖാന്റെ സന്ദർശനം താലിബാനെതിരെ ശക്തമായ നടപടി വേണമെന്നും യൂ

ഇന്നലെ പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പ്രകാരം ഷിൻസോ ആബേ പ്രധാനമന്ത്രി പദത്തിൽ തുടരും ഇതോടെ ജപ്പാന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദം അലങ്കരിച്ച വൃക്തി എന്ന റെക്കോർഡ് ഷിൻസോ ആബേ സ്വന്തമാക്കും ഷിൻസോ ആബേ നയിക്കുന്ന ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടാനായില്ല